പശ്ചിമ ചരക്ക് ഗതാഗത ഇടനാഴിയുടെ റെവാഡി മദാർ മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

അമേരിക്കയിൽ പാർലമെന്റ് മന്ദിരത്തിൽ അതിക്രമിച്ചു കയറി ട്രംപ് അനുകൂലികൾ വാഷിങ്ടൺ ഡിസിയിൽ കർഫ്യൂ

അമേരിക്കയിൽ സമാധാനപരമായ അധികാര കൈമാറ്റം നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സിഡ്നിയിൽ മഴപ്പേടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ്

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങ്ളിൽ പുതിയ വളർച്ചാ കേന്ദ്രങ്ങളുടെ വികസനത്തിന് ഇത് സ്ഥായിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പശ്ചിമ ചരക്ക് ് ഇടന്റാഴിയിലെ റെവാഡി മദാർ മേഖല രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്രംസാരിക്കുകയായി രുന്നു അദ്ദേഹം

ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻഗഢ് വരെ സർവീസ് നടത്തുന്ന ഒന്നരകിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ്ങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു നിലവിൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സേവനം നടത്തുന്ന ട്രെയിനുകളുടെ നാലിരട്ടി കണ്ടെയ്നർ യൂണിറ്റുകൾ ഡബിൾ സ്റ്റാക്ക് ലോംഗ് ഹോൾ കണ്ടെയ്നർ ട്രെയിനിൽ വഹിക്കാനാകും

തെരഞ്ഞെടുപ്പിൽ പ്രാഥമിക വിജയിയായ ജോ ബൈഡനെ ക്ഷണിക്കുന്നതിനായുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്നപ്പോഴാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത് അക്രമാസക്തരായ പ്രവർത്തകരോട് മടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണം ആവർത്തിച്ചു

നിയമവിരുദ്ധ പ്രതിഷേധങ്ങളിലൂടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു

ആലപ്പുഴ കലക്ടർ എ അലക്സാണ്ടറുമായി സംഘം കൂടിക്കാഴ്ച ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ നടത്തി കേന്ദ്ര പൊതുജനാരോഗൃ വിദഗ്ധൻ ഡോക്ടർ രുചി ജയ്ൻ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ശൈലേഷ് പവാർ ഡൽഹി ആർ എം എൽ ആശുപത്രി ഫിസിഷ്യൻ അനിത് ജിൻഡാൽ എന്നിവരാണ് സംഘത്തിലുള്ളത്

പക്ഷികൾ കൂട്ടമായെത്തുന്ന പ്രദേശങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർവ്ക്ഷിച്ചുവരികയാണ്

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവേൽ ബോണാണ് ഫ്രഞ്ച് പ്രതിനിധി ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള വിവിധ ആഗോള വിഷയങ്ങളാണ് ചർച്ചാവിഷയമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

ലഡാക്കിൽ നിന്നുള്ള പത്തംഗ പ്രതിനിധി സംഘം ഇന്നലെ ന്യൂഡൽഹിയിൽ ശ്രീ അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി ലഡാക്കിന്റെ ബുദ്ധിമുട്ടേറിയ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും തന്ത്രപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത് ഭാഷ സംസ്കാരം ഭൂമി എന്നിവയുടെ സംരക്ഷണം വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം തൊഴിൽ ജനസംഖ്യ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തുടങ്ങിയവ ജനപ്രതിനിധികൾ പങ്കുവച്ചു

ഇന്നലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ന്യപ്രഖ്യാപന പ്രസംഗത്തിനായി ക്ഷണിച്ചു

വൈദ്യുതി ഉപഭോഗം കൂടുതൽ കാര്യക്ഷമാക്കുന്നതിന്റെ ഭാഗമായി ഫിലമെന്റ് രഹിത കേരളം പദ്ധതി ഉദ്ഘാടനം ഇന്ന് രാവിലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിച്ചു

ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അന്ത്യം

ഇതോടെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിടുകയാണ്

കൂടുതൽ വിവരങ്ങളുമായിട്സുരേഷ് ഗോപി ദിവസങ്ങളായി രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തിൽ താഴെയാണ്

സുഖം പ്രാപിക്കുന്നവരും രോഗബാധിതരും തമ്മിലുള്ള അന്തരം കൂടുകയാണ്

പൊതുപരിപാടികളും ഉത്സവാഘോഷങ്ങളും സംഘടിപ്പിക്കുന്നവർ ആരോഗ്യവകുപ്പിന്റെ അനുമതി വാങ്ങണം